ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്പതി രാംനാഥ് കോവിന്ദ് വെർച്വൽ ആയി വിതരണം ചെയ്യും

ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചതും കൂടുതൽ പേർ രോഗമുക്തി നേടിയതും ഏറ്റവും കൂടുതൽ പേർ സമ്പർക്ക രോഗികളായതും ഇന്നലെയാണ്

പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ മാത്രമാണ് നൂറിൽ താഴെ രോഗികൾ

ദേദ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ലോക്സഭാംഗവും തമിഴ്നാട് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡണ്ടുമായിരുന്ന എച്ച് വസന്തകുമാർ ചെന്നൈയിൽ അന്തരിച്ചു

പ്രമുഖ വ്യാപാരിയായിരുന്ന അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കന്യാകുമാരിയിൽ നിന്ന് മുൻകേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനെ തോൽപ്പിച്ചാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കോവിഡ് ബാധയെത്തുടർന്ന് ഈ മാസം പത്തിനാണ് വസന്തകുമാറിനെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദേദ വസന്തകുമാറിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കൾ അനുശോചിച്ചു സംരഭകനും സാമൂഹ്യ പ്രവർത്തകനുമെന്ന നിലയിൽ രാഷ്ട്രീയ ബിസിനസ് മേഖലകളിൽ പേരെടുത്ത നേതാവായിരുന്നു വസന്തകുമാറെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ വസന്ത്കുമാറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു

ഇദ്ദേഹം ഹൃദയ സംബന്ധമായ രോഗത്തിനും ആണ് ചികിത്സയിലായിരുന്നു

സാമൂഹിക അകലം കുറഞ്ഞു വരുമ്പോൾ മുന്നറിയിപ്പു നൽകുന്ന വെലിബാന്റ് ഉപകരണം പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ദേശീയ ശ്രദ്ധ നേടുകയാണ്

ഓണാഘോഷം കണക്കിലെടുത്ത്കർശനമായ നിയന്ത്രണങ്ങളാണ് ജില്ലാഭരണകൂടവും പൊലീസും ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കുവാൻ വ്യാപാരസ്ഥാപനങ്ങൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്

കിറ്റുകൾ ലഭ്യമാവാത്തവർക്ക് ഓണത്തിന് ശേഷം കിറ്റുകൾ ലഭ്യമാക്കുമെന്നും മാനേജർ അറിയിച്ചു

പൊതു സ്ഥലങ്ങളിൽ ഓണാഘോഷം നടക്കുന്നില്ലെന്നു റസിഡന്റ്സ് അസോസിയേഷനുകൾ ഉറപ്പാക്കണമെന്നും ഇത്തരം പരിപാടികൾ നടത്തുന്നതു ശ്രദ്ധയിൽപ്പെട്ടാൽ പൊലീസിനെ അറിയിക്കണമെന്നും കളക്ടർ അഭ്യർഥിച്ചു

ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വെർച്വൽ ആയി വിതരണം ചെയ്യും രാജീവ്ഗാന്ധി ഖേൽ രത്ന അർജ്ജുന ദ്രോണാചാര്യ ധ്യാൻചന്ദ് അവാർഡുകളും ടെൻസിംഗ് നോഗെ ദേശീയ അഡ്വവഞ്ചർ പുരസ്കാരവും രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരവും രാഷ്ട്രപതി ഓൺലൈനായി സമ്മാനിക്കും കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജ്ജു പങ്കെടുക്കും

പുരസ്കാര സമർപ്പണത്തിന്റെ ഓൺലൈൻ റിഹേഴ്സലിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായത് ഒളിമ്പ്യൻ വന്ദന റാവു അശ്വനി നാച്ചപ്പ മുരളിക്കുട്ടൻ റോസക്കുട്ടി എം കെ ആശ ജി ജി പ്രമീള തുടങ്ങിയ താരങ്ങളുടെ പരിശീലകനാണ്

ദേശ രാജ്യത്തെ രണ്ടാം നിര പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് പുതുസംരംഭങ്ങളും സോഫ്റ്റ് വെയർ ഉൽപ്പന്നങ്ങളും കൂടുതൽ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്ന പുതുതലമുറ സ്റ്റാർട്ട് അപ്പ് ചലഞ്ച് ചുനൌത്തിക്ക് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് തുടക്കം കുറിച്ചു

ഐയുടെ വെബ്സൈററ് വഴി പുതുസംരംഭങ്ങൾക്ക് സ്റ്റാർട്ട് അപ്പ് ചലഞ്ചിന് അപേക്ഷിക്കാം

ദേദ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപള്ളി നിർവ്വഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷം തൈകൾ വിവിധ പഞ്ചായത്തുകളിലെ അഞ്ച് ഹെക്ടർ സ്ഥലത്തേക്ക് നേരത്തേ വിതരണം ചെയ്തിരുന്നു ദ്ദേഴ തലശ്ശേരി മാഹി ബൈപാസ് റോഡിൽ നിർമ്മാണത്തിനിടെ പാലത്തിന്റെ ബീമുകൾ തകർന്നു വീണ സംഭവം കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഗുരുതരമായ ക്രമക്കേട് പാലം നിർമ്മാണത്തിൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു തകർന്നു വീണ നെട്ടൂരിലെ ബാലത്തിൽ പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല

സുധാകരൻ കെ മുരളീധരൻ എം

ദദദ കൊല്ലം ചടയമംഗലത്ത് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തി ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ചെലവിൽ കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ന്യൂനപക്ഷ കാര്യ മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ് വി ഉറപ്പ് നൽകിയതായി എൻ

പ്രേമചന്ദ്രൻ എം

ദേശ ആഗസ്ത് മാസത്തെ റേഷൻ വിതരണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗയമായി സംസ്ഥാനത്തെ റേഷൻ കടകൾ പൊതു അവധി ദിവസമായ നാളെയും തുറന്ന് പ്രവർത്തിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചു

ആഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം അടുത്ത മാസം അഞ്ചു വരെ വാങ്ങാമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു